സംസ്ക്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഇന്ന് വൈകിട്ട് നടക്കും

വിശദാംശങ്ങളുമായി കരോൾ എബ്രഹാം

ഇന്ന് രാവിലെ ഒൻപതരയോടെ പഞ്ചിമിലെ ബിജെപി ആസ്ഥാനത്ത് എത്തിച്ച മൃതദേഹം അവിടെ പൊതുദർശനത്തിന് വച്ചു കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി ശ്രീപദ് നായിക് എം പിയായ നരേന്ദ്ര സവായ്ക്കർ മറ്റ് മുതിർന്ന ബി ജെ പി നേതാക്കൾ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു അദ്ദേഹത്തിന്റെ ഭൌതിക ശരീരം പനാജിയിലെ കലാ അക്കാഡമിയിൽ അൽപ്പസമയത്തിനകം പൊതുദർശനത്തിന് വയ്ക്കും സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകിട്ട് മിരാമർ കടൽത്തീരത്താണ് നടക്കുക

മേഖലയിൽ സുരക്ഷ ഗതാഗത ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിജെപി ദേശീയ അദ്ധ്യക്ഷൻ അമിത് ഷാ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി

പരീക്കറുടെ നിര്യാണത്തോടെ രാജ്യത്തിന് ഒരു മികച്ച നേതാവിനെയാണ് നഷ്ടപ്പെട്ടതെന്ന് മന്ത്രിസഭ അറിയിച്ചു ലാളിത്യമുള്ള മികച്ച ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം എക്കാലവും ഓർമ്മിക്കപ്പെടുമെന്നും സാധാരണക്കാരന്റെ മുഖ്യമന്ത്രി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നതെന്നും അംഗങ്ങൾ വിലയിരുത്തി ഗോവയ്ക്ക് ഒരു പുതിയ പ്രതിഛായ നൽകുന്നതിനും രാജ്യത്തിന്റെ സൈനിക വിഭാഗങ്ങളെ ആധുനികവൽക്കരിക്കുന്നതിലും പരീക്കർ നൽകിയ സംഭാവനകളെ മന്ത്രിസഭ അനുസ്മരിച്ചു

സിക്കിം ക്രാന്ദികാരി മ്മോർച്ച് എട്ടും ഹമ്രോ സിക്കിം പാർട്ടി പത്തും സീറ്റുകളിലേക്ക് സ്ഥാന്ടർത്ഥികളെ പ്രഖ്യാപിച്ചു

ഔറംഗാബാദ് നവാഡ ഗയാജമുയി എന്നിവയാണ് ലോക്സഭാ സീറ്റുകൾ ആർ ജെ ഡി എം എൽ എ രാജ് ബല്ലഭ് യാദവ് അയോഗ്യനാക്കപ്പെട്ട സാഹചര്യത്തിലാണ് നവാഡയിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത്

അനധികൃത പണമിടപാട് നിരീക്ഷിക്കാൻ പട്ന കേന്ദ്രമായി കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്

നിലവിലെ എംപി യും മുൻ കേന്ദ്ര മന്ത്രിയുമായ ഡോ അൻപുമണി രാമദോസ് ധർമ്മപുരിയിൽ മത്സരിക്കും മുൻ കേന്ദ്ര മന്ത്രി എ

നാല് സൈനിക ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു

യാതൊരു പ്രകോപനവുമില്ലാതെയാണ് പാക്സേന ആക്രമണം നടത്തിയതെന്ന് പ്രതിരോധവൃത്തങ്ങൾ അറിയിച്ചു ഇന്നലെ രാത്രി ആരംഭിച്ച ഏറ്റുമുട്ടൽ ഇന്ന് രാവിലെ വരെ തുടർന്നു

ഇവർ അപകടനില തരണം ചെയ്തിട്ടുണ്ട്

ആഗോള ഭീകരവാദം അവസാനിപ്പിക്കാൻ എത്രയും വേഗം യോഗം ചേർന്ന് നടപടികൾ ആലോചിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഭീകരവാദം തുടച്ചുനീക്കാൻ എല്ലാ രാഷ്ട്രങ്ങളും ഒറ്റക്കെട്ടായി പോരാടണമെന്നാണ് ന്യൂസിലന്റിലുണ്ടാ വെടിവെയ്പ് ആക്രമണം സൂചിപ്പിക്കുന്നത് ആഗോള വെല്ലുവിളിയാണിത്

ഒരു രാജ്യത്തിനും ഭീകരവാദം ഉയർത്തുന്ന ഭീഷണിയിൽ നിന്ന് മുക്തി നേടാനാവില്ലെന്നും ശ്രീ വെങ്കയ്യ നായിഡു അഭിപ്രായപ്പെട്ടു ഹൈദരാബാദിൽ ഒരു അനുമോദന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി

വൈറസ് മൂലമുണ്ടാകുന്ന പക്ടർച്ച്ച്വ്യാധിയായ വെസ്റ്റ് നൈൽ കൊതുക് വഴിയാണ് പ്പക്രുന്നത്

രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്നലെയാണ് ശ്രീമതി സുഷമ സ്വരാജ് മാലദ്വീപിലെത്തിയത്

വിവിധ മേഖലകളിലെ വികസനങ്ങളിൽ സഹകരിക്കാനും ഇരു രാജൃങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും ഇന്ത്യയും മാലദ്വീപും തീരുമാനിച്ചു ശേഷി വികസ്ത്രി ആരോഗ്യ സഹകരണം വ്യാപാരം നിക്ഷേപം സ്പ്രിദ്വ്യ്പസ്ഥ തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം മെച്ച്പ്പെടുത്താനും യോഗത്തിൽ തീരുമാനമായി മാലദ്വീപിൽ പുതിയ ഗവൺമെന്റ് ചുമതലയേറ്റ ശേഷമുള്ള് ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുടെ ആദ്യ സന്ദർശനമാണിത്

മറ്റ് മുതിർന്ന മന്ത്രിമാരുമായും പാർലമെന്റ് സ്പീക്കർ കാസിം ഇബാഹിമുമായും സുഷമ സ്വരാജ് കൂടിക്കാഴ്ച നടത്തി

ആഫ്രിക്കയിൽ സമാധാനം പുലരാൻ സൈനിക നടപടികൾ ശക്തമാക്കുന്നതിനിടെയാണ് ആക്രമണം ആഭ്യന്തര പ്രശ്നങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും കാരണം ആഫ്രിക്കൻമേഖല അശാന്തമാണ്

നഗരമായ ബെയ്റയിലേക്ക് തിരിച്ചുവിട്ട കപ്പലുകളിൽ ഭക്ഷണസാധനങ്ങൾ വൃസ്തൃങ്ങൾ മരുന്നുകൾ തുടങ്ങിയ അവശ്യസാധനങ്ങൾ കരുതിയിട്ടുള്ളതായി വിദേശകാര്യമന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു അത്യാവശ്യ വൈദ്യസഹായത്തിനായി മൂന്ന് ഡോക്ടർമാരും അഞ്ച് നഴ്സുമാരും സംഘത്തിലുണ്ടാകും

മേ കൊണ്ടുവന്ന കരാർ രണ്ട് തവണ പരാജയപ്പെട്ടിരുന്നു